രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധത് അറിയിച്ച് ഇന്തൃ

സ്കൂളുകളും കോളേജുകളും തുറന്നപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഫോൺ സേവനം ലഭ്യമാക്കിയിരുന്നു ജമ്മുകാശ്മീരിൽ വിനോദസഞ്ചാരികൾക്കുള്ള നിയന്ത്രണം കഴിഞ്ഞ ദിവസം നീക്കിയിരുന്നു ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിച്ചതോടെയാണ് ഫോൺ ഉപയോഗത്തിൽ ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്

പ്രകോപനമില്ലാതെയാണ് പാക് ഭാഗത്തുനിന്നും വെടിവെയ്പുണ്ടായതെന്ന് ഇന്ത്യൻ സേനാ വക്താവ് അറിയിച്ചു

ഇന്ത്യൻ സേന ശക്തമായ തിരിച്ചുടിച്ചു

രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഫിതി മെച്ചപ്പെടുത്താൻ ഗവൺമെന്റ് കൈക്കൊള്ളുന്ന നടപടികളായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക അവശത അനുഭവിക്കുന്ന ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ചെറുകിട മധ്യവർഗു സംരംഭങ്ങൾ ഇവയ്ക്കുള്ള ധനസഹായം സംബന്ധിച്ചുള്ള അവലോകനവും പ്രധാന ചർച്ചാ വിഷയമാണ്

ഒരു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ധനമന്ത്രി ബാങ്ക് മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്

മഹാരാഷ്ട്രയിൽ ഇന്നലെ പ്രചാരണ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ

കിഴക്കൻ ഗോദാവരി മേഖലയിലെ സകോളി ബ്ലോക്കിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മഹാരാഷ്ട്രയിലെ കോലാപ്പൂരിൽ ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷായും തിരഞ്ഞെടുപ്പു റാലിയെ അഭിസംബോധന ചെയ്തു

ജെ പി നയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റാണ് സംസ്ഥാന വികസനത്തിന് കൂടുതൽ ഫണ്ട് അനുവദിച്ചതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്

ജെ പി നേതൃത്വവും മാധ്യ്മുങ്ങളും രാജ്യത്തെ പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുപ്പിടാനാണ് ശ്രമിക്കുന്നതെന്ന് രാഹുൽഗാന്ധി ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ചീഫ് ജസ്റ്റിസ് രഞ്ഞ്ജൻ ഗൊഗോയ് യുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ബെഞ്ചാണ് വാദം കേൾക്കുന്നത് ആഗസ്റ്റ് ആറു മുതലാണ് കേസിൽ പ്രതിദിന വാദം കേൾക്കൽ തുടങ്ങിയത്

ഏകീകൃത ടോൾ സംവിധാനം നടപ്പിലാക്കാനുള്ള ധാരണാപത്രത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ വകുപ്പുകളും ഏജൻസികളും ഒപ്പിടും ടോൾ അടയ്ക്കുന്നതിനുള്ള ഫാസ്റ്റാഗ് സംവിധാനവും ചരക്ക് സേവന നികുതിയുടെ ഭാഗമായ ഇ വേ ബിൽ സംവിധാനവും സംയോജിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രവും ഒപ്പിടും കേന്ദ്രമന്ത്രി വി

സിങ്ങും വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും വിവിധ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും

പരസ്പര താത്പര്യമുള്ള ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുന്ന ഉചിതമായ വേദിയാണ് ബ്രിക്സ് എന്ന് ശ്രീ

വ്യാഴാഴ്ച അവർ കൊച്ചിയും വെള്ളിയാഴ്ച കുട്ടനാടും സന്ദർശിക്കും

വെങ്കയ്യനായിഡുവിന്റെ ഏപ്പർ ്നത്തിന്റെ ഭാഗമായാണ് കരാറുകൾ ഒപ്പിട്ടത്

ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും സിയോറ ലിയോൺ പ്രസിഡന്റ് ജൂലിയസ് മാഡ ബയോറും ഇന്നലെ തലസ്ഥാനമായ ഫ്രീടൌണിലാണ് കരാറുകളിൽ ഏർപ്പെട്ടത് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ അഞ്ച് ദിവസത്തെ സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിലാണ് ശ്രീ

സിയോറ ലിയോൺ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ജുൽദേഹ് ജല്ലാഹ് ഉപരാഷ്ട്രപതിയ്ക്ക് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി

സെയ്റാ ലിയോണിലേക്കുള്ള ഉന്നതതല ഇന്ത്യൻ സംഘത്തിന്റെ ആദ്യ സന്ദർശനമാണ് ഇത് ഐക്യരാഷ്ട്ര സംഘടനയിൽ കാലികമായ മാറ്റത്തിന്റെ ആവശ്യം ഇരുരാജ്യങ്ങളും പങ്കുവച്ചു

നിരവധി പേർക്ക് പരിക്കേറ്റു രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുള്ള സന്നദ്ധത ഇന്ത്യ ജപ്പാനെ അറിയിച്ചു ജപ്പാനിൽ ഉണ്ടായ കനത്ത ജീവഹാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ ഇന്ത്യ സന്നദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദുരന്തത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് ജപ്പാൻ ജനത കരകയറട്ടെ എന്ന് ട്വിറ്ററിൽ അദ്ദേഹം കുറിച്ചു

ശക്തമായ കാറ്റിനൊപ്പം കനത്ത മഴയും വെള്ളപ്പൊക്കവുമാണ് ദുരിതം വിതച്ചത്

രണ്ട് മത്സരം മഴ കാരണം ഉപേക്ഷിച്ചു

ബെലാറസിന്റെ പുരുഷതാരം വിറ്റാലി ഷീർബോയെയാണ് സിമോൺ മറികടന്നത്

ടൂർണമെന്റിൽ ഇന്ത്യയുടെ രണ്ടാം വിജയമായിരുന്നു ഇത് റൌണ്ട് റോബിൻ ലീഗ് മത്സരത്തിൽ ഇന്ത്യ നാളെ ജപ്പാനെ നേരിടും

നാളെ നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ വീണ്ടും ബംഗ്ലാദേശുമായി ഏറ്റുമുട്ടും

ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അദ്ദേഹം ഭഗവത്ഗീത സമ്മാനിച്ചു കേരളത്തിലെ ക്ഷേത്ര ഉത്സവങ്ങളിൽ എഴുന്നള്ളിപ്പിനു തിടമ്പേന്തി നെറ്റിപ്പട്ടം കെട്ടിനിൽക്കുന്ന തരത്തിലുള്ള ആനയുടെ രൂപവും സമ്മാനിച്ചു വിശുദ്ധപ്രഖ്യാപന ചടങ്ങിനു മുമ്പ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലായിരുന്നും കൂടിക്കാഴ്ച

സെന്റ് അനസ്താസിയ ബസിലിക്കയിൽ സിറോ മലബ്ബാ്ർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യകാർമികനാകും മെത്രാപ്പൊലീത്തമാർ മെത്രാൻമാർ വൈദികർ എന്നിവർ സഹകാർമികരാകും